വർദ്ധമാനെ പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യയ്ക്ക് കൈമാറും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ ഇന്ന് വിപിധ വികസനപദ്ധതികൾക്ക് തുടക്കം കുറിക്കും

അഭിനന്ദന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് തങ്ങളെന്ന് ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു ന്യൂഡൽഹിയിൽ വ്യോമ നാവിക സേന ഉദ്യോഗസ്ഥരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എയർ വൈസ് മാർഷൽ ആർ ജി കെ കപൂർ അറിയിച്ചതാണ് ഇക്കാര്യം അഭിനന്ദനെ വിട്ടയയ്ക്കാൻ തീരുമാനിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഇന്നലെ പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാനാണ് സമാധാന സൂചകമായി അഭിനന്ദനെ വിട്ടയ്ക്കുമെന്ന വിവരം അറിയിച്ചത്

അതേസമയം പാകിസ്ഥാൻ പ്രിടീകൂടിയ ഇന്ത്യൻ വ്യോമസേനാ പൈലറ്റിനെ വിട്ടയയ്ക്കാനുള്ള് ഇസ്ലാമാബാദിന്റെ തീരുമാനം യു എസ് സ്വാഗതം ചെയ്തു ് ജമ്മുകശ്മീരിൽ പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു വടക്കൻ കശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഉറി മേഖലയിലാണ് വെടിനിർത്തൽ കരാർ ലംഘനം നടന്നത്

പ്രദേശത്ത് തീവ്രവാദികളുണ്ടെന്ന വിവരം ലഭിച്ചതിനെ ് തുടർന്ന് സുരക്ഷാസേന നടത്തിയ തെരച്ചിലിനിടെയാണ് തീവ്രവാദികൾ സംഭവം സുരക്ഷാസേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയും തുടർന്ന് ഏറ്റുമുട്ടൽ ഉണ്ടായതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

തനിക്ക് ലഭിച്ച വിവരമനുസരിച്ച് മസൂദ് അസുഖ ബാധിതനാന്നെന്ന് മെഹ്മൂദ് ഖുറൈശി ലാഹോറിൽ പറഞ്ഞു പാകിസ്ഥാൻ കോടതി അംഗീകരിക്കുന്ന തരത്തിൽ മതിയായ തെളിവുകൾ ഇന്ത്യ കൈമാറുകയാണെങ്കിൽ അസറിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഖുറൈശി കൂട്ടിച്ചേർത്തു

ഭീകരവാദ സംഘനകളുമായി അടു്ത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷ സംബന്ധിച്ച ഉന്നതതല യോഗത്തിന് ശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം ജമാത്ത് ഇ ഇസ്ലാമിയെ നിരോധിച്ച്കൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ജമാത്ത് ഇ ഇസ്താമി തീവ്രവാദത്തേയും ഭീകരവാദത്തേയും പ്രോത്സാഹിപ്പിക്കുന്നതായി കേന്ദ്രഗവൺമെന്റിന് ബോധ്യമുണ്ടെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു

നിയമവിരുദ്ധമായി വൻ സ്ഫോടക വസ്തു ശേഖരം കൈവശം വച്ചതായിരുന്നു ഇവർക്കെതിരെയുള്ള കുറ്റം

ജമ്മുകാശ്മീർ സംവരണ ഭേദഗതി ഓർഡിനൻസിനും മന്ത്രിസഭ അംഗീകാരം നൽകി

കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലെ മറ്റ് തീരുമാനങ്ങൾ

ഇക്കൊല്ലം ജനുവരിയിൽ ലോക്സഭ പാസാക്കിയ ബില്ലിൽ നിർദ്ദിഷ്ട ഭേഗദതികൾ ഉൾപ്പെട്ടിരുന്നു

ഇത് പഞ്ചസാര ഉത്പാദകർക്ക് അവരുടെ കൂടിശിക കുറയ്ക്കാൻ സഹായകമാകുമെന്നും മന്ത്രിസഭ്രൂ വിലയിരുത്തി

ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം വാഹനങ്ങളുടെ നിർമ്മാണം ത്രിതഗതിയിലാക്കുന്ന ഫെയിം ഇന്ത്യയുടെ രണ്ടാംഘട്ടത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ ഇന്നലെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാനിലെ തീവ്രവാദി താവളങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ വ്യോമ നടപടിയ്ക്ക് ശേഷം അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇനിയും സംയമന നയം ഇന്ത്യ സ്വീകരിക്കില്ല എന്ന നിലപാട് ലോകം തിരിച്ചറിഞ്ഞതായും ശീ അമിത്ഷാ പറഞ്ഞു

റോഡ് സൂരക്ഷാ പാർക്കിനും ട്രാൻസ്പോർട്ട് മ്യൂസിയത്തിനും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും ഇന്ത്യയിലെ രണ്ടാമത്തെ ഹൈ ഫൈ തേജസ് ട്രെയിൻ സർവ്വീസ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും

രാമേശ്വരത്ത് ടൂറിസം മേഖലക്ക് ശക്തിപകരാൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട വിവിധ നിർമ്മാണങ്ങൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും

തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി ് കെ പളനിസ്ഥാമി ഉപമുഖ്യമന്ത്രി ഒ പനീർശെൽവം കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണൻ എന്നിവർ അടക്കമുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

റെയിൽവേ മൈതാനത്ത് അദ്ദേഹം പ്രചാ ചൈതന്യസഭാ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്

മുംബൈ ഔറംഗാബ്ദി എന്നിവിടങ്ങളിലാണ് തിരച്ചിൽ ഐ സി ഐ സി ഐ ബാങ്ക് വീഡിയോകോൺ വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് തിരച്ചിൽ

കഴിഞ്ഞമാസം എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് ചന്ദ കൊച്ചാർ അവരുടെ ഭർത്താവ് ദീപക് വേണുഗോപാൽ ദൂത് എന്നിവർക്കെതിരെ പണം തട്ടിപ്പ് കേസിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇവർ രാജ്യം വിടാതിരിക്കാൻ ഇതേകേസിൽ സി ബി ഐ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു

ഭീകരവാദത്തിനെതിരെ ഇന്ത്യ നടത്ത്ത്ന് പോരാട്ടങ്ങൾക്ക് റഷ്യ നൽകിവരുന്ന പിന്തുണയും നേത്രാക്കളുടെ സംഭാഷണത്തിനിടെ പരാമർശ വിഷയമായി

അബുദാബി കിരീടാവകാശി ഷേയ്ഖ്മുഹമ്മദ് ബിൻ സയിദ് അൽ നഹിയാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി

റിട്ട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

തിരുപ്പൂരിൽ ഇന്നലെ അതിക്കടവ് അവിനാശി ജലസേചന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ജല ആവശൃകത നേരിടുന്ന തെലങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾക്ക് ഈ ജലം പ്രയോജനപ്പെടുത്താനാണ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി